രാഷ്ട്രപതി രാം നാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും കരസേനാ അംഗങ്ങൾക്കും മുൻ സൈനികർക്കും അഭിവാദ്യം അർപ്പിച്ചു കരസേന രാഷ്ട്രത്തിന്റെ അഭിമാനമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു സൈന്യത്തിന്റെ പരമോന്നത ത്യാഗമാണ് പരമാധികാരം നേടിത്തന്നതെന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു സ്ത്രീ പുരുഷ സൈനികർ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പു വരുത്തുന്നതായി ഉപരാഷ്ട്രപതി ട്വിറ്ററിൽ പറഞ്ഞു സൈനികരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ത്യാഗം എക്കാലവും രാഷ്ട്രം നന്ദിയോടെ സ്മരിക്കുമെന്നും വെങ്കയ്യ നായിഡു പറഞ്ഞു ദേദ കരസേന ദിനത്തിൽ കരസേനാ മേധാവി എം എം നരവനെ സൈനികരെയും കുടുംബാംഗങ്ങളെയും മുൻ സൈനികരെയും അഭിനന്ദിച്ചു ഏത് വെല്ലുവിളിയും നേരിടാൻ സൈന്യം സജ്ജമാണെന്നും ഡൽഹിയിലെ കന്റോൺമെന്റിൽ കരസേനാ ദിനാഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഭീകരവാദം നേരിടാൻ വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിന് സൈന്യം മടിക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു

കരസേനാ ദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ ഡിഫൻസ് സ്റ്റാഫ് മേധാവി ജനറൽ ബിപിൻ റാവത്തും മൂന്ന് സേനാമേധാവികളും ആദരാഞ്ജലി അർപ്പിച്ചു ദരദ ശബരിമല പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം

വൻ ഭക്തജനതിരക്കാണ് സന്നിധാനത്ത് അല്പസമയത്തിനകം ഉച്ച പൂജ കഴിഞ്ഞ് അടയ്ക്കുന്ന നട വൈകുന്നേരം അഞ്ചിന് തുറക്കും

ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഭക്തരും ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിക്കും

ഇതിന് ശേഷമാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത് മകരവിളക്കിനു ശേഷം അഞ്ച് ദിവസത്തെ പ്രധാന ചടങ്ങായ നായാട്ടു വിളി തുടങ്ങും ദേദ മകരസംക്രാന്തിയും പൊങ്കലും പ്രമാണിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു കർഷകരുടെ കഠിനാധ്വാനത്തെ ആദരിക്കാനുള്ള അവസരമാണ് ഉത്സവങ്ങളെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു സമാധാനപരമായ സഹവർത്തിത്വവും ഐക്യവും ശക്തിപ്പെടുത്താൻ ഉത്സവങ്ങൾ സഹായിക്കുമെന്ന് രാഷ്ട്രപതി വിശ്വാസം പ്രകടിപ്പിച്ചു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഉത്സവങ്ങളെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പറഞ്ഞു ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംസ്കാരവും പാരമ്പര്യവും ഐശ്വര്യം നിറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ പറഞ്ഞു ദദദ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം സംഗീത സംവിധായകൻ ഇളയരാജയ്ക്ക് സമ്മാനിച്ചു ശബരിമല സന്നിധാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് പുരസ്കാരം സമ്മാനിച്ചത് ദരദ അമേരിക്കയുമായി സംഘർഷാവസ്ഥ നിലനിൽക്കെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി ജാവദ് സരീഫ് മൂന്നു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തി ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും വിദേശകാര്യവകുപ്പ് സംഘടിപ്പിക്കുന്ന റെയ്സിനാ ഡയലോഗിലും അദ്ദേഹം സംബന്ധിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നാളെ സരീഫുമായി ചർച്ച നടത്തും

രാജ്യത്തെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും പരിപാടിയുടെ ഭാഗമാകും സമ്മർദ്ദത്തെ അതിജീവിച്ച് പരീക്ഷയെ എങ്ങനെ നേരിടാം എന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ് പരീക്ഷാ പേ ചർച്ചയിലെ പ്രധാന ഭാഗം

ദേദ കേരളാ കോൺഗ്രസ് എമ്മിലെ ഇരുവിഭാഗക്കാരുടെയും അവകാശതർക്കത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദം കേൾക്കൽ ആരംഭിച്ചു ഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ അശോക് ലവാസ സുശീൽ ചന്ദ്ര എന്നിവരാണ് വാദം കേട്ടത് ജോസ് കെ മാണിയും പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫും ഹാജരായി രണ്ടില ചിഹ്നം തങ്ങൾക്ക് അനുവദിക്കണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെട്ടു ഭാരവാഹിയല്ലാത്ത ജോസ് കെ മാണി പാർട്ടി ഭരണഘടന അംഗീകരിക്കുന്നില്ലെന്ന് പി ജെ ജോസഫ് അറിയിച്ചു

ദദ നിർഭയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ടവർക്ക് മരണ വാറന്റയച്ച ഡൽഹി കോടതി നടപടി ചോദ്യം ചെയ്ത് പ്രതി മുകേശ് കുമാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അഭിഭാഷക വ്യന്ദ ഗ്രോവർ വഴിയാണ് ഹർജി നൽകിയത്

ഫാസ്ടാഗില്ലാത്ത വാഹനങ്ങൾക്ക് ടോൾപ്പാസകളിൽ ഇനി ഒരു ട്രാക്ക് മാത്രമാണുണ്ടാവുക ഫാസ്ടാഗില്ലാത്ത വാഹനങ്ങൾ ഈ ട്രാക്കിലൂടെ കടന്നു പോകേണ്ടി വരും ദേദ കഴിഞ്ഞ വർഷത്തെ ഐ സി സി ഏകദിന ക്രിക്കറ്റ് അവാർഡിന് വിരാട് കോഹ് ലിയെയും രോഹിത് ശർമ്മയെയും തെരഞ്ഞെടുത്തു കോഹ് ലിക്ക് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡും രോഹിതിന് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡുമാണ് ലഭിച്ചത് ഒഴെ ഐ എസ് എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ് സി ഇന്ന് ഒഡീഷ എഫ് സിയെ നേരിടും

ഗുവഹത്തിയിൽ നടക്കുന്ന മൂന്നാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ വോളിബോൾ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും സൈക്ലിങ്ങിലേയും ഷൂട്ടിങ്ങിലേയും മെഡലുകളും ഇന്ന് നിശ്ചയിക്കും ഖോ ഖോ മത്സരങ്ങൾക്കും ഇന്ന് തുടക്കമാകും

രണ്ടാം സെമിയിൽ ഹരിയാനയും മഹാരാഷ്ട്രയും തമ്മിലാണ് മത്സരം ദുദ ടെക്നിക്കൽ ഹൈസ്കൂൾ സംസ്ഥാന കലോത്സവത്തിന് നാളെ കൊല്ലത്ത് തുടക്കമാകും വൈകിട്ട് എഴുകോൺ ടെക്നിക്കൽ ഹൈസ്കൂളിലെ പ്രധാന വേദിയിൽ മന്ത്രി ഡോക്ടർ കെ

ജലീൽ കലോത്സവം ഉദ്ഘാടനം ചെയ്യും

എച്ച് ആർ

ദരദ വയനാട് മേപ്പാടി അട്ടമലയിലെ സ്വകാര്യ വില്ലയ്ക്ക് നേരെ മാവോയിസ്റ്റുകളുടെ ആക്രമണം വില്ലയുടെ ചില്ലുകൾ തകർക്കുകയും സമീപത്ത് സൂക്ഷിച്ചിരുന്ന പഴയ സാധനങ്ങൾ കത്തിക്കുകയും ചെയ്തു ഇന്നലെ രാത്രിയിലാണ് സംഭവം വില്ലയുടെ പരിസരത്ത് മാവോയിസ്റ്റ് നാടുകാണി ഏരിയാ കമ്മറ്റിയുടെ പേരിൽ പോസ്റ്ററുകളും പതിച്ചിട്ടുണ്ട് ദേദ രാജ്യ ത്ത് സ്വർണാഭരണങ്ങൾക്ക് ബി ഐ

ഹാൾമാർക്കിംഗ് നിർബന്ധമാക്കുന്ന നടപടികൾ ഇന്ന് ആരംഭിക്കും

മാനദണ്ഡം ലംഘിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ മുതൽ സ്വർണാഭരണ ത്തിന്റെ മൂല്യ ത്തിന്റെ അഞ്ചിരട്ടി വരെ പിഴയും ജയിൽ ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്നതാണ് കേന്ദ്രം പാസാക്കിയ ബി ഐ എസ് നിയമം ദദ സ്വർണവില വീണ്ടും വർദ്ധിച്ചു

കോഴിക്കോട് വയനാട് മല പ്പുറം ജില്ലകളിൽ അറവുമാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നട പ്പാക്കാൻ കമ്പനിയുടെ പ്രതിനിധികൾ ജില്ലാ ശുചിത്വ മിഷൻ യോഗ ത്തിൽ പദ്ധതി അവതരി പ്പി ച്ചു ആദ്യ ഘട്ട ത്തിൽ കോഴിക്കടകളിൽ നിന്നുള്ള മാലിന്യം ശേഖരി ച്ച് സംസ്കരിക്കും ദ്ദേ സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യുണൈസേഷൻ പദ്ധതി പ്രകാരം അഞ്ചു വയസിൽ താഴെ കുട്ടികൾക്ക് ഞായറാഴ്ച പോളിയോ തുള്ളി മരുന്ന് വിതരണം ചെയ്യും

രാജ്യത്ത് തൊഴിൽ മേഖലയിൽ കുടിയേറ്റം വർധിച്ച സാഹചര്യത്തിൽ മുൻകരുതലായാണ് ഇമ്മ്യൂണൈസേഷൻ നടത്തുന്നത് ദര കോഴിക്കോട് ജില്ലയിൽ ലൈഫ് മിഷൻ മുഖേന നിർമി ച്ച വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും ഗുണഭോക്താക്കളുടെ ജില്ലാതലസംഗമവും നാളെ നടക്കും മന്ത്രി ടി പി രാമകൃഷ്ണ്ൻ ഉദ്ഘാടനം ചെയ്യും

ദരദ ദേശീയ ചുമട്ടുതൊഴിലാളി യൂണിയൻ ഐ

സി കണ്ണൂർ ജില്ലാ സമ്മേളനം അടുത്ത മാസം മൂന്നിന് പയ്യന്നൂരിൽ നടക്കുമെന്ന് യൂണിയൻ ജില്ല പ്രസിഡന്റ് കെ

സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ദുദ സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച പദ്ധതി നിർവ്വഹണ ഏജൻസിക്ക് നൽകുന്ന പുരസ്കാരം ലഭിച്ചു

ബി സി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി ദേശീയ പിന്നാക്ക വിഭാഗ ധനകാര്യ വികസന കോർപറേഷന്റെ പദ്ധതികൾ നടപ്പാക്കിയതിനാണ് പുരസ്കാരം ഹിമാചൽ പ്രദേശ് രണ്ടും തമിഴ്നാട് മൂന്നും സ്ഥാനങ്ങൾ നേടി